മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് അവലോകനം ചെയ്യും

അനന്ദ് കുമാറിന്റെ ന് നിര്യാണത്തിൽ ക്യേന്ദ്രമന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തിശവസംസ്കാരം ഉച്ചയ്ക്ക് ശേഷം

മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനം വേണമെന്ന് ട്വിറ്ററിനോട് കേന്ദ്ര ഗവൺമെന്റ്

മോദി പങ്കെടുക്കുന്ന അഞ്ചാമത്തെ കിഴക്കൻ ഏഷ്യ ഉച്ച്കോടിയാണ് നാളെ നടക്കുന്നത്

ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച മേഖലാ സാമ്പത്തിക സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്ന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കിഴക്കൻ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ് ശ്രീ മോദിയുടെ സിംഗപ്പൂർ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അറിയിച്ചു നിരവധി വിദേശകാര്യ സെക്രട്ടറി ലോകനേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

കമ്മീഷണർമാരായ സുനിൽ അറോറ അശോക് ലവാസ എന്നിവരടങ്ങിയ സംഘമാണ് ഇൻഡോറിലെത്തുന്നത്

പോളിംഗ് പൊതുവേ സമാധാന പരമായിരുന്നുവെന്ന് ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

സാങ്കേതിക കാരണങ്ങളാൽ തടഞ്ഞുവച്ച ചാംഹായ് മണ്ഡലത്തിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും

ന്യൂഡൽഹിയിൽ ഇന്നലെ രാത്രി ചേർന്ന പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് സ്ഥാന്യാർത്ഥി നിർണ്ണയം നടത്തിയത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എൻ

വർക്കിംഗ് പ്രസിഡന്റ്മാരായ ഭട്ടി വിക്രമാർകയും രേവന്ദ് റെഡ്നിയും ഏതാനും മുൻ മന്ത്രിമാരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്

ചാംരാജ്പേട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്ക്കാര ചടങ്ങുകൾ കൂടുതൽ വിവരങ്ങളുമയി സോഫിയ ഇന്നലെ മുതൽ വസതിയിൽ പൊതുദർശനത്തിനുവച്ച അനന്ത് കുമാറിന്റെ ഭൌതിക ശരീരത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു

രാവിലെ ബംഗളൂരുവിലെ ബിജെപി ഓഫീസിൽ പൊതുദർശനത്തിനു വച്ച ഭൌതീക ശരീരത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് പൊതു ജനങ്ങൾക്ക് ആദരാജ്ഞലി അർപ്പിക്കാനായി നാഷണൽ കോളേജ് ഗ്രൌണ്ടിലേക്ക് കൊണ്ടുപോയി ന്യൂഡ്ർഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ധ്യക്ഷതയിൽ രാവിലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ പ്രത്യേകയോഗ്ക് ക്യേന്ദ്രമന്ത്രി അനന്ത് കുമാറിന്റെ നിര്യാണത്തിൽ അനുശ്ശോച്ചനം രേഖപ്പെടുത്തി അന്തരിച്ച നേതാവിനോടുള്ള ആദര സൂചകമായി മന്ത്രിസഭ രണ്ടുമിനിട്ട് ആചരിച്ചു

അർബുദരോഗത്തെ തുടർന്ന് ഇന്നലെ പുലർച്ചെയായിരുന്നു അനന്ത്കുമാർ അന്തരിച്ചത് പാർലമെന്ററി കാര്യത്തിന് പുറമേ കേന്ദ്ര രാസവള വകുപ്പിന്റെ ചുമതലകൂടി അനന്ത്കുമാർ വഹിച്ചിരുന്നു ന്യൂസ്ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബ ട്വിറ്ററിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം ഇന്ത്യയിൽ നിന്നുള്ളവരെ അറിയിച്ചത് ഇതിനായി നിയമിക്കണമെന്നും കേന്ദ്രഗവൺമെന്റ് ട്വിറ്റർ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ട്വിറ്റർ പ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പ് നൽകി

ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേതാണ് തീരുമാനം

പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ പരിശോധിക്കാമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കി

വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

ആന്ധ്രാപ്രദേശ് ബംഗാൾ തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂടെയാണ് ചുഴലിക്കാറ്റ് കടന്നുപോവുക വൃാഴം വെള്ളി ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപക മഴ ലഭിക്കും ഈ ദിവസങ്ങളിൽ പാലക്കാട് ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

അസ്സമിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ഡി

മാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ സൈനിക ഓഫീസർമാർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള മാർഗ്ഗങ്ങൾ യോഗം ചർച്ചു ചെയ്തു

എൽ വി മാർക്ക് ദ യുടെ വിക്ഷേപണം നാളെ

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ

വി കുതിച്ചുയരുമെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു

എസ് എൽ

എസ് എൽ വി മാർക്ക് ഉപഗ്രഹ വാഹനത്തിന് ശേഷിയുണ്ട്

അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹോയത്തോടെ പുതിയ സാങ്കേതിക മേഖലകൾ പരീക്ഷിക്കാനും ശേഷിയുണ്ട്

ഇ ഒ അമിതാഭ് കാന്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ദ്വീപ് വികസന ഏജൻസിയുമായി പദ്ധതികളുടെ പുരോഗതി ചർച്ച ചെയ്തു പരിസ്ഥിതി രംഗത്ത് സുസ്ഥിര വികസനം കൈവരിച്ച റോസ് ആന്റ് സ്മിത്ത് ദ്വീപുകൾ സംഘം സന്ദർശിച്ചു

കരീംഗഞ്ച് സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവെ പോലീസ് മയക്ക് മരുന്ന് പിടികൂടിയത്

രാജ്യത്തെ പുരാതന ആഘോഷങ്ങളിലൊന്നായ ഛാട്ട് പൂജയിൽ സൂര്യഭഗവാനെയാണ് ആരാധിക്കുന്നത് പുഴകൾ തടാകങ്ങൾ തുടങ്ങിയ ജലസോത്രസ്സുകൾ മലിനരഹിതമായി കാത്തു പരിപാലിക്കാൻ പൌരൻമാർ പ്രതിജ്ഞ എടുക്കണമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു